വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതും പൊതു ജാഗ്രത കുറഞ്ഞതും രോഗ വ്യാപനത്തിന് കാരണമായെന്ന് യോഗം വിലയിരുത്തി

ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പൊലീസിനെയും നിയോഗിക്കും സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ഈ നടപടി തുടരും സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ എണ്ണം വർധിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദേശം നൽകി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കർക്കശമാക്കി ഫെബ്രുവരി പകുതിയോടെ രോഗവ്യാപനം കാര്യമായി കുറയ്ക്കാനാണ് ഗവ

കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം പ്രതിദിനം ഒരു ലക്ഷമായി വർധിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി നിർദേശം നൽകി

തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധ വാർഡുതല സമിതികൾ പുനസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

പുറമെ നിന്ന് രോഗവുമായി വരുന്നവരാണ് വീടുകളിൽ കഴിയുന്നവർക്ക് കോവിഡ് ഉണ്ടാകാൻ വഴിയൊരുക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു

വാക്സിൻ നൽകേണ്ട അഞ്ച് ലക്ഷത്തിലേറെപ്പേരുടെ രജിസ്ട്രേഷനും പൂർത്തിയായിട്ടുണ്ട്

ഏഴ് കേന്ദ്രങ്ങളിലായിരുന്നു വാക്സിനേഷൻ ദര കൊല്ലം ജില്ലയിൽ കോവിഡ് രോഗവ്യാപനം വർധിക്കുന്ന സാഹചര്യത്തിൽ ഗവ

കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളുടെ എണ്ണം വർധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികളും കൈക്കൊള്ളും രോഗവ്യാപനം തടയുന്നതിനായി പരിശോധനകൾ അടക്കം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് യോഗത്തിൽ ജില്ലാ കലക്ടർ നിർദേശിച്ചു ദേദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകീട്ട് ലോക സാമ്പത്തിക ഫോറത്തിന്റെ ദാവോസ് സംഭാഷണത്തെ വിഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും നാനൂറിലേറെ ആഗോള വ്യവസായ പ്രമുഖർ സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാലാം വ്യവസായ വിപ്സവം മാനവികതയുടെ നന്മക്കുവേണ്ടി സാങ്കേതിക വിദ്യ എന്ന വിഷയത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പ്രമുഖ കമ്പനികളുടെ മേധാവികളുമായും നരേന്ദ്രമോദി ചർച്ച നടത്തും ഇന്ത്യയുടെ പരിഷ്കരണ നയങ്ങളും സാങ്കേതിക വിദ്യയുടെ വർധിച്ച ഉപയോഗവും ഉൾപ്പെടെ വിഷയങ്ങൾ സാമ്പത്തിക ഫോറത്തിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ദ്ദേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് എൻ സി സി റാലിയെ അഭിസംബോധന ചെയ്യും എൻ സി സി കേഡറ്റുകളുടെ മാർച്ച് പാസ്റ്റ് പരിശോധിക്കുന്ന അദ്ദേഹം പരേഡിന്റെ അഭിവാദ്യവും സ്വീകരിക്കും രാജ്യരക്ഷാ മന്ത്രി സായുധസേനാ മേധാവികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും ദേദ ആലപ്പുഴ ബൈപാസ് ഉച്ചയ്ക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് നാടിന് സമർപ്പിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചടങ്ങിൽ സംബന്ധിക്കും

കളർകോട് കൊമ്മാടി ജംഗ്ഷനുകൾ വികസിപ്പിച്ച് മനോഹരമാക്കുകയും ചെയ്തു മന്ത്രി ജി

കേന്ദ്രസഹമന്ത്രിമാരായ വി മുരളീധരൻ വി

സിംഗ് മന്ത്രിമാരായ ഡോ തോമസ് ഐസക് പി തിലോത്തമൻ തുടങ്ങിയവരും ജനപ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ദേദ സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ രണ്ടര ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഓൺലൈനിൽ നടത്തും ഇതോടൊപ്പം തദ്ദേശ സ്ഥാപനതല ഗുണഭോക്തൃസംഗമവും അദാലത്തും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ തൃശൂരിൽ അറിയിച്ചു തിരുവനന്തപുരത്ത് പദ്ധതിയിൽ വീട് നിർമ്മിച്ച വട്ടിയൂർക്കാവ് വാഴാട്ടുകോണത്തെ കെ പ്രഭ എന്ന വീട്ടമ്മയുടെ ഗൃഹപ്രവേശന ചടങ്ങിലും പൊതുപരിപാടിക്ക് മുമ്പ് മുഖ്യമന്ത്രി പങ്കെടുക്കും

വീടുകൾ നിർമ്മിച്ച ഗുണഭോക്താക്കളുടെ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും ദ്ദേ ഡൽഹിയിലെ കർഷക ട്രാക്ടർ റാലിയിൽ അക്രമമു ണ്ടാക്കാൻ കോൺഗ്രസ് ഗൂഢശ്രമം നടത്തിയതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കുറ്റപ്പെടുത്തി കർഷക പ്രക്ഷോഭം ശക്തമാക്കാൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നിരന്തരം പ്രേരണ ചെലുത്തുകയായിരുന്നുവെന്നും ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ പറഞ്ഞു രാജ്യത്ത് പ്രശ്നങ്ങളുണ്ടാക്കാനും അശാന്തിയ്ക്ക് വഴിയൊരുക്കാനും കോൺഗ്രസ് ശ്രമിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചു

ഇന്ന് ഹൈദരാബാദ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും

ദേദ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നണികൾ ഒരുക്കം തുടങ്ങി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി

ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഇന്നലെ തുടക്കമിട്ടു മുസ്ലിം ലീഗുമായി മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇന്നലെ ചർച്ച നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിടാൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ കേരളത്തിലെത്തും പ്രമുഖ വ്യക്തികളുമായും മത സാമുദായിക സംഘടനാ നേതാക്കളുമായും അദ്ദേഹം ചർച്ച നടത്തും തിരുവനന്തപുരത്ത് ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും ദേദ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യു ഡി എഫ് കൺവീനർ എം

രാഘവൻ എം പി എന്നിവർ താമരശേരി കോഴിക്കോട് ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി നേരത്തെ സമസ്ത പ്രസിഡന്റിനേയും സന്ദർശിച്ചു സൌഹൃദ സന്ദർശമാണെന്ന് ഉമ്മൻ ചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ദേദ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കൽപ്പറ്റയിൽ സംഘടനാ നേതാക്കൾ സാമൂഹിക സാംസ്കാരിക പ്രമുഖർ മത മേലധ്യക്ഷൻമാർ തുടങ്ങിയവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും കൽപ്പറ്റ ബത്തേരി നിയോജകമണ്ഡലം യുഡിഎഫ് കൺവെൻഷനുകൾ രാഹുൽഗാന്ധി ഉദ്ഘാടനം ചെയ്യും

ദേദ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സി

എം ബിജെപിയുമായി കൂട്ടു ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് എ ഐ

ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി കണ്ണൂർ ജില്ലയിൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ പുനസംഘടന ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വേണുഗോപാൽ ദര മൽസ്യബന്ധനത്തിനിടെയുണ്ടാകുന്ന അപകടങ്ങളിൽ അതിവേഗ അടിയന്തര രക്ഷാപ്രവർത്തനം നടത്താൻ അത്യാധുനിക മറൈൻ ആംബുലൻസുകൾ പ്രത്യാശ കാരുണ്യ എന്നിവ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊച്ചി കപ്പൽശാലയിൽ ആംബുലൻസുകൾ ഉദ്ഘാടനം ചെയ്യും

ചന്ദ്രശേഖരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി മൂന്നര കോടി രൂപ ചെലവിലാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണം ദേദ കേരളത്തിലെ പതിനാലായിരത്തിലേറെ റേഷൻ കടകൾ മുഴുവൻ ജനങ്ങളുടെയും അത്താണിയായി മാറിക്കഴിഞ്ഞെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു സംസ്ഥാന ഭക്ഷ്യകമ്മീഷന്റെ ബോധവത്കരണ പൊതുജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കാസർക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്ര കോൺഗ്രസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും

ദേദ കോഴിക്കോട്ടെ പൂട്ടികിടക്കുന്ന കോംട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി തൊഴിലാളികളെ സംരക്ഷിക്കാനും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകാനും ബി ജെ പി എം പിമാർ വഴി ശ്രമിക്കുമെന്ന് പാർട്ടി ജില്ലാ പ്രസിഡണ്ട് വി കെ സജീവൻ അറിയിച്ചു